രാജ്യത്തെ ചരക്കു സേവന നികുതിശേഖരം കഴിഞ്ഞ മാസം പതിനായിരം കോടിയോളം എത്തി ജി എസ് ടി റിട്ടേൺ സമർപ്പിക്കുന്നതിന് പുതിയ സംവിധാനം ഏർപ്പെടുത്തും

കുറഞ്ഞതായും കാലാവസ്ഥ വൃതിയാനം മൂലം ഏറെ പ്രശ്നങ്ങൾ നേരിടുന്ന രാജ്യങ്ങളിലൊന്ന് ഇന്ത്യയാണെന്നും ശ്രീ സിംഗ് വ്യക്തമാക്കി

കൂടുതൽ മഴവെള്ളം സംഭരിക്കേ തു െ ന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു

ആദ്യഘട്ടത്തിൽ എല്ലാ സംസ്ഥാനങ്ങളും പദ്ധതിയിൽ പങ്കാളികളാകും ര ാംഘട്ടത്തിൽ തുലാവർഷം ലഭിക്കുന്ന സംസ്ഥാനങ്ങളെ ഉൾപ്പെടുത്തും

മഴവെള്ള സംഭരണം ഉൾപ്പെടെയുള്ള ജലസംരക്ഷണം പരമ്പരാഗത ജല സംഭരണികളുടെ ് നവീകരണം ജലത്തിന്റെ പുനരുപയോഗം കുഴൽ കിണർ നിറയ്ക്കൽ നീർത്തട വികസനം മരം നട്ടുപിടിപ്പിക്കൽ തുടങ്ങി അഞ്ച് മേഖലകൾക്കാണ് പദ്ധതി ഉൌന്നൽ നൽകുന്നത് ജല സംരക്ഷണ യത്നങ്ങളിൽ സമയബന്ധിതമായി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ജൽശക്തി അഭ്ദിയാൻ ന്യൂസ് ഡെസ്ക് ആകാശവാണി

അഴിമതി കുറയ്ക്കാനും ഗവൺമെന്റ് സേവനങ്ങൾ കാര്യക്ഷമമാക്കി പാവപ്പെട്ടവർക്ക് അതിന്റെ ഗുണഫലങ്ങൾ എളുപ്പത്തിൽ ലഭ്യമാക്കാനും പദ്ധതി സഹായകരമായതായി അദ്ദേഹം അഭിപ്രായപ്പെട്ടു ഡിജിറ്റൽ ഇന്ത്യയുടെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് നൽകിയ ട്വിറ്റർ സന്ദേശത്തിലാണ് പ്രധാനമന്ത്രി ഇങ്ങനെ പറഞ്ഞത് ഡിജിറ്റൽ ഇന്ത്യ കൂടുതൽ ശക്തിപ്പെടുത്താൻ യത്നിച്ച എല്ലാ ജനങ്ങൾക്കും ശ്രീ മോദി നന്ദി അറിയിച്ചു ഡിജിറ്റൽ ഇന്ത്യ ഒരു ദേശീയ പ്രസ്ഥാനമായി മാറണമെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം

മലയോര പാതയിലൂടെ സഞ്ചരിച്ച മിനി ബസ്സ് കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടം

അപകടത്തിൽ മരിച്ചവരുടെ ആശ്രിതർക്ക് അഞ്ച് ലക്ഷം രൂപ വീതം ഗവർണർ സത്യപാൽ മാലിക് പ്രഖ്യാപിച്ചു പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കാനും ഗവർണർ ജില്ലാ ഭരണകൂടത്തിന് നിർദ്ദേശം നൽകി രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഗവർണർ സത്യപാൽ മാലിക് തുടങ്ങിയിപ്പർ അപകടത്തിൽ അഗാധ ദുഃഖം രേഖപ്പെടുത്തി

തൊഴിലവസര സൃഷ്ടി പ്രോത്സാഹിപ്പിക്കുന്നതിന് തൊഴിൽദായകർക്ക് പ്രോത്സാഹനങ്ങൾ നൽകാനാണ് പ്രധാൻ മന്ത്രി റോസ്ഗാർ പ്രോത്സാഹൻ യോജന ആരംഭിച്ചതെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി

ജനങ്ങളുടെ മനോഭാവത്തിലുള്ള മാറ്റമാണ് പദ്ധതിയുടെ വിജയം സൂചിപ്പിക്കുന്നതെന്നും കേന്ദ്രമന്ത്രി അഭിപ്രായപ്പെട്ടു

രാജ്യസഭയിൽ ഇതു സംബന്ധിച്ച ചോദ്യത്തിനു മറുപടി പറയുകയായിരുന്നു അദ്ദേഹം

ജമ്മുവിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് പത്ത് കിലോമീറ്റർ ചുറ്റളവിലുളളവർക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ഗവൺമെന്റ് ഉദ്യോഗം ലഭിക്കുന്നതിനും സംവരണം അനുശാസിക്കുന്നതാണ് ബില്ല് ഈ വർഷം അവസാനംവരെ ജമ്മുകാശ്മീരിൽ തെർഞ്ഞെടുപ്പ് വേ െന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ അവിടെ രാഷ്ട്രപതി ഭരണം ആറ് മാസത്തേക്കു കൂടി നീട്ടാതെ തരമില്ലെന്ന് ബില്ല് അവതരിപ്പിച്ചു കൊ ് ആഭ്യന്തരമന്ത്രി പറഞ്ഞു ജമ്മുകാശ്മീരിൽ ്തെരഞ്ഞെടുപ്പ് നടത്താതെ രാഷ്ട്രപതിഭരണം നീട്ടുന്നതിനെ കോൺഗ്രസിലെ വിപ്തവ് താക്കൂർ ചോദ്യം ചെയ്തു ഇതിലൂടെ കാശ്മീർ ജനതയെ വഞ്ചിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയുമാണ് ബി ജെ പി ഗവൺമെന്റ് ചെയ്യുന്നതെന്ന് അവർ കുറ്റപ്പെടുത്തി

ടി റിട്ടേണുകൾ ഫയൽ ചെയ്യപ്പെടുകയു ായെന്നും അറിയിപ്പിൽ പറയുന്നു

ഈ വർഷം ഒക്ടോബർ ഒന്നു മുതൽ പുതിയ സംവിധാനം നിർബന്ധിതമാക്കും ചെറുകിട നികുതിദായകർക്ക് വ്യവഹാരങ്ങൾ ലളിതമാക്കുന്നതിനായി സഹജ് സുഗം റിട്ടേണുകൾ ധനകാര്യ മന്ത്രാലയം നിർദ്ദേശിച്ചിട്ടു ്

ടി സമ്പ്രദായം ഇന്ത്യയിലെ നികുതി ഘടനയെ ലോക നിലവാരത്തിലേയ്ക്ക് ഉയർത്തിയതായി ഉപരാഷ്ട്രപതി എം

രാജ്യസഭാ അധ്യക്ഷൻ എം വെങ്കയ്യ നായിഡു സത്യവാചകം ചൊല്ലിക്കെടുത്തു

ഡോക്ടർ ദിനത്തോടനുബ്സ്സിച്ച് ഡൽഹി മെഡിക്കൽ അസോസിയേഷൻ പ്രതിനിധിക്ളുമായി ന്യൂഡൽഹിയിൽ ആശയവിനിമയം നടത്തുകയായ്ടിരുന്നു് ഉപരാഷ്ട്രപതി

ലോക്സഭ തെരഞ്ഞെടുപ്പിൽ പരാജയം നേരിട്ടതുമൂലം അധ്യക്ഷ പദവി രാജിവെയ്ക്കാൻ ശ്രീ രാഹുൽ ഒരുങ്ങിയ പശ്ചാത്തലത്തിലാണ് കൂടിക്കാഴ്ച

ഉദ്യോഗസ്ഥയ്ക്കെതിരെ അധിക്ഷേപകരമായ ഉത്തരവ് നൽകിയതിനാണ് സെബിയ്ക്കെതിരെ സാറ്റ് പിഴ ചുമത്തിയത്

കാൽ വിരലിന് പരിക്കേറ്റ് ഇന്ത്യൻ ഓൾ റൌ ് ർ വിജയ് ശങ്കറിന് ലോകകപ്പ് ക്രിക്കറ്റിലെ ശേഷിക്കുന്ന മത്സരങ്ങൾ നഷ്ടമായേക്കും